ഉൽപാദനം വർധിപ്പിച്ച് ഇന്ത്യ ഓക്സിജൻ ലഭ്യതയും വിതരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി

കേരളത്തിൽ നിലവിൽ ചികിത്സയിലുള്ളത് നാല് ന് ലക്ഷത്തിലേറെ കോ്പിഡ് രോഗികൾ ആശങ്ക നൽകി മരണനിരക്ക്

പെരുന്നാൾ ആഘോഷിച്ച് വിശ്വാസികൾ കോവിഡ് പശ്ചാത്തലത്തിൽ പെരുന്നാൾ നമസ്കാരം വീടുകളിൽ മാത്രം

സാധ്യത ബിഹാറിൽ ഇടിമിന്നൽ ഭീതിയിൽ ജനം കേരളത്തിലും അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം

ഇവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും നിർമ്മാതാക്കൾ സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രാജ്യത്ത് റെംഡെസിവിർ ഉൾപ്പെടെയുള്ള എല്ലാ മരുന്നുകളുടെയും ഉൽപാദനം ഗണൃമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് രാജൃത്ത് ഓക്സിജൻ ലഭൃതയെയും വിതരണത്തെയും കുറിച്ചുള്ള സ്ഥിതിഗതികളും പ്രധാനമന്ത്രി വിലയിരുത്തി വ്യോമസേനാ വിമാനങ്ങളിലൂടെ ഓക്സിജൻ എത്തിക്കുന്നതും ഓക്സിജൻ റെയിൽ എന്നിവ സംബന്ധിച്ചും പ്ര്യാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗം ചർച്ച് ചെയ്തു

രോഗസ്ഥിരീകരണ നിരക്ക് അഞ്ച് മുതൽ പത്ത് ശതമാനം വരെയുള്ള ജില്ലകളിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താം എന്നാൽ കർശന നിയന്ത്രണങ്ങളിലൂടെ മാത്രമേ രോഗസ്ഥിരീകരണ നിരക്ക് പത്തിൽ താഴെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നും ഡോ ബൽറാം ഭാർഗവ പറഞ്ഞു

കോവിഡ് സാഹചര്യം നേരിടാൻ വിവിധ സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് അടിയന്തര നടപടികൾ സ്വീകരിച്ചതായി നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ് അറിയിച്ചു കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് ഗ്രാമ പ്രദേശങ്ങളിൽ സേനയെ പറഞ്ഞു

വിവിധ രാജ്യങ്ങളിൽ നിന്ന് മെഡിക്കൽ ഓക്സ്സിജൻ എത്തിക്കുന്നതിൽ നാവികസേന വിപുലമായ പ്രവർത്തിനും നടത്തിവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ത്യയിൽ ഇതുവരെ ആകെ രണ്ടര ലക്ഷത്തിലേറെ പേർക്ക് കോവിഡ് മൂലം ജീവൻ നഷ്ടമായി

എറണാകുളം മലപ്പുറം കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്

കോവിഡ് മരണസംഖൃയിലുണ്ടായ പെട്ടെന്നുള്ള വർധന ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്

കോവിഡ് വൃാപനം കൂടുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി എം

സ്റ്റാലിൻ ഇന്ന് സർവ്വകക്ഷിയോഗം വിളിച്ചിട്ടുണ്ട്

വാടക ഉടമ്പടി ട്ടൈവ്യൂത് ബിൽ ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ തൊഴിലുടമ്പ് നൽകിയ സർട്ടിഫിക്കറ്റ് എന്നിവയിലേതെങ്കിലും മുൻപ് ആധാർ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ് വോട്ടർ ഐഡി കാർഡ് എന്നിവയിലൊന്ന് നിർബന്ധമായിരുന്നു

രോഗികളുടെ രക്തത്തിലെ ഓക്സിജൻ നില അനുസരിച്ച് ഓക്സിജൻ നൽകുന്നത് നിയന്ത്രിക്കുന്ന ഓക്സിജൻ വിതരണ സംവിധാനമാണ് ഓക്സി കെയർ

വീടുകൾ കോവിഡ് കെയർ സെന്റുകൾ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ഓക്സി കെയർ സംവിധാനങ്ങൾ ഉപയോഗിക്കാം ഇന്ത്യയിലെ നിരവധി വ്യവസായ സംരംഭങ്ങൾക്ക് ഡിആർഡിഒ ഓക്സി കെയർ സാങ്കേതികവിദൃ ഇതിനകം കൈമാറിയിട്ടുണ്ട്

നിയന്ത്രണിങ്ങൾ നിലവിലുള്ളതിനാൽ പള്ളികളിലെയും ഈദ് ഗാഹുകളിലെയും പെരുന്നാൾ നമസ്കാരവും ബന്ധുവീടുകളിലെ സന്ദർശനവും ഒഴിവാക്കിയാണ് ഇക്കുറി ആഘോഷങ്ങൾ കോവിഡ് മാനദണ്ഡം പാലിക്കുന്നതിൽ ജാഗ്രതക്കുറവ് ഉണ്ടാക്ടരുത്തെന്ന് വിശ്വാസികളോട് മതപണ്ഡിതരും സർക്കാരും ആഹ്വാനം ചെയ്തിരുന്നു

മഴ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിന് സ്റ്റാധ്യതയുണ്ട് മലയോര മേഖകളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്

രണ്ടാം ഡോസ് സ്വീകരിക്കാൻ ഉള്ളവർക്ക് മാത്രമേ ഇന്ന് മുതൽ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകൂ എന്ന് മഹാരാഷ്ട്ര ആരോഗ്യമന്ത്രി രാജേഷ് ടോപ്പെ പറഞ്ഞു

ആശുപത്രിയിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്ക് മികച്ച പിന്തുണയാണ് നൽകുന്നതെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു കേന്ദ്രം നൽകിയ വെന്റിലേറ്ററുകൾ ഉപയോഗ്യശൂനൃമായി കിടക്കുകയാണെന്ന മീഡിയ റിപ്പോർട്ടുകളിൽ പലതും കൃത്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നില്ലെന്നും വെന്റിലേറ്ററുകളുടെ അടിയന്തിര ഉപയോഗം ഉറപ്പാക്കാനുള്ള എല്ലാ ന്ടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും കേന്ദ്രആരോഗ്ച്ച മ്ന്താലയം വൃക്തമാക്കി

ഫംഗസ് ബാധ സംബന്ധിച്ച് പരിഭ്രാന്തി പരത്തരുതെന്നും അണുബാധയുടെ പ്രാരംഭ ഘട്ടത്തിൽ ചികിത്സ എളുപ്പമാണ് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അണുബാധയ്ക്കെതിരായ കുത്തിവയ്പ്പുകളും മരുന്നുകളും ചെലവേറിയതിനാൽ പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്ക് സർക്കാർ സഹായമുണ്ടാകുമെന്നും ശ്രീ ചൌഹാൻ പറഞ്ഞു